ചീഫ് ജസ്റ്റിസിന്റെ ഓഫീസും വിമ്പരാവ്കാശ നിയമത്തിന്റെ പരിധിയിൽ വരുമെന്ന് സൂപ്രീം കോടതി

ആശുപത്രികൾ അനുവദിക്കുമെന്ന് സംസ്ഥാന ഗവൺമെന്റ്

ഇന്ത്യൻ താരങ്ങളായ പി

സിന്ധുവും എച്ച് എസ് പ്രണോയും ഹോങ്കോംഗ് ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ രണ്ടാം റൌണ്ടിൽ കടന്നു

റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിനുമായാണ് പ്രധാനമന്ത്രിയുടെ ആദ്യ ചർച്ച തുടർന്ന് ബ്രസീലിയൻ പ്രസിഡന്റ് ജെയർ ബോൽസൊനാരൊയുമായും ചൈനീസ് പ്രസിഡന്റ് ഷ്ട് ജിങ്പിങുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും

ഇന്ത്യയും ബ്രസീലും തമ്മിലുള്ള തന്ത്രപ്രധാനമായ പ്രിക്കാളിത്തം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ബ്രസീൽ പ്രസിഢന്റുമായി ചർച്ച നടത്താൻ ഈ സന്ദർശനം അവസരം ഒരുക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

ബ്രിക്സ് ബിസിനസ് കൌൺസിൽ ചർച്ചയും ബ്രിക്സ് ബിസിനസ് ഫോറവും ഇന്ന് നടക്കും ബ്രിക്സ് രാജ്യങ്ങളിലെ വൻകിട ബിസിനസ് പ്രതിനിധികളും ബിസിനസ് ഫോറത്തിൽ പങ്കെടുക്കുന്നുണ്ട് ബ്രിക്സ് സമൂഹത്തിന്റെ സാമ്പത്തിക വികസനത്തിനായുള്ള പരസ്പര സഹകരണം സംബന്ധിച്ചും നേതാക്കൾ ചർച്ച നടത്തും

ഭീകരവാദം തടയുന്നതിനുള്ള സഹകരണം സംബന്ധിച്ചും ഉച്ചകോടിയിൽ ചർച്ച നടക്കും ന്യൂസ്ഡെസ്ക് ആകാശവാണി

എ

എന്നാൽ ഇവർക്ക് ഡിസംബർ അഞ്ചിന് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാമെന്നും കോടതി വ്യക്തമാക്കി

എൽ എ മാർ സമർപ്പിച്ച ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ വിധി

ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ ഇവർക്ക് മന്ത്രിപദമോ മറ്റ് ഔദ്യോഗിക സ്ഥാനമോ വഹിക്കുന്നതിന് തടസ്സമില്ലെന്നും ജസ്റ്റിസുമാരായ എൻ

വസ്തുതകളുടെയും സാഹചര്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഈ വിധിയെന്നും അംഗങ്ങളെ അയോഗ്യരാക്കാനുളള സ്പീക്കറുടെ അധികാരത്തിൽ തങ്ങൾ ഇടപെടുകയല്ലെന്നും പരമോന്നത കോടതി അറിയിച്ചു അതേസമയം ഹൈക്കോടതിയെ സമീപിക്കാതെ സുപ്രീം കോടതിയിൽ നേരിട്ട് ഹർജി നൽകിയ എം എൽ എ മാരുടെ നടപടിയിൽ കോടതി അതൃപ്തി പ്രകടിപ്പിച്ചു

അതേസമയം ഡൽഹിയിലെ വായുമലിനീകരണം ഗുരുത്രമായ നിലയിൽ തന്നെ തുടരുകയാണ്

മാലിന്യങ്ങൾ ഭൂമിയോട് കൂടുതൽ അടുക്കുന്നുണ്ട്

കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ കോഴിക്കോട് നടക്കുന്ന ബീച്ച് ശുചീകരണ യജ്ഞത്തിന്റെ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു മന്ത്രി

വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തെ തുടർന്ന് ജെ

സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കായി പ്രത്യേക സാമ്പത്തിക സഹായത്തിനുള്ള പദ്ധതിയും കമ്മിറ്റി മുന്നോട്ടുവച്ചിട്ടുണ്ട്

നിലവിൽ മധ്യപ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ അജയ്കുമാർ മിത്തലിന്റെ പിൻഗാമിയായാണ് ശ്രീ

റഫീക്ക് രാജസ്ഥാൻ ക്ഹെക്കോടതിയിലും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്

ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടനാ ബഞ്ചിന്റേതാണ് വിധി

വോയ്സ് ചീഫ് ജസ്റ്റിസിന്റെ ഓഫിസ് ഒരു പൊതു അധികാര കേന്ദ്രമായതിനാൽ അത് ആർ ടി ഐ യുടെ പരിധിയിൽ വരുമെന്ന ഡൽഹി ഹൈക്കോടതി വിധിക്കെതിരെ സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് സുപ്രീംകോടതി ഇങ്ങനെ വിധിച്ചത്

എന്നാൽ നിയമനത്തിനായി കൊളീജിയം ശുപാർശ ചെയ്യുന്ന ജഡ്ജിമാരുടെ പേരുകൾ മാത്രമേ പുറത്തുവിടാനാകൂ എന്നും ഇതിന് പിന്നിലെ കാരണങ്ങൾ വ്യക്തമാക്കാനാവില്ലെന്നും അഞ്ചംഗ ബഞ്ച് ചൂണ്ടിക്കാട്ടി ചീഫ് ജസ്റ്റിസ് ഓഫീസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വിടുമ്പോൾ സുതാര്യതയ്ക്കൊപ്പം തന്നെ സ്ഥകാര്യതയും പരിഗണിക്കേണ്ടതുണ്ടെന്നും പരമോന്നത കോടതി അഭിപ്രായപ്പെട്ടു

അതിർത്തി ബങ്കറുകളുടെ നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനായുള്ള യോഗത്തിൽ ജില്ലാ വികസന കമ്മീഷണർ മുഹമ്മദ് ഐജാസ് ആസാദാണ് ഇക്കാര്യം അറിയിച്ചത്

ഐ

ഐയുടെ ഭാഗമായി ആശുപത്രികളിൽ എല്ലാ ചികിത്സയും ലഭ്യമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ടി

നിലവിലുള്ള ഇ

ഐ

എല്ലാ ഗവൺമെന്റ ജീവനക്കാർക്കും ഇ

ഐ സേവനം ജ്യൂമാക്കുക എന്നതാണ് ഗവൺമെന്റിന്റെ നിലപാടെന്ന് മന്ത്രി നിയമ്സ്ഭൂര്യ അറിയിച്ചു

സി

സഖ്യ ഗവൺമെന്റ് രൂപീകരണത്തിന്റെ ചർച്ചകൾ നടക്കുന്നതിനിടെ ശിവസേന അധ്യക്ഷൻ ്ഉദ്ദവ് താക്കറെ മുംബൈയിൽ കോൺഗ്രസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ ബാലസാഹേബ് തൊറാട്ട് മുൻ മുഖ്യമന്ത്രി അശോക് ചവാൻ മാനിക്റാവു താക്കറെ എന്നിവരടങ്ങിയ കോൺഗ്രസ് സംഘവുമായാണ് അദ്ദേഹം ചർച്ച നടത്തിയത് ഈ സഖ്യത്തിൽ ഗവൺമെന്റ് രൂപീകരിക്കാനായാൽ പൊതു മിനിമം പരിപാടിയുടെ നടപടി ക്രമങ്ങളെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തു ചർച്ചകൾ ആരംഭിച്ചതായും ശരിയായ ദിശയിലാണ് ചർച്ച മുന്നോട്ട് പോകുന്നതെന്നും ശ്രീ

എന്നാൽ ശിവസേനയുമായി സൌഹൃദ ചർച്ച മാത്രമാണ് നടന്നതെന്നും പൊതു മിനിമം പരിപാടി സംബന്ധിച്ച് ആദ്യം എൻ

അതേസമയം പൊതു മിനിമം പരിപാടി സംബന്ധിച്ച് കോൺഗ്രസുമായി ചർച്ച ചെയ്യാൻ എൻ

അഞ്ചംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്

പ്രദേശത്ത് നിന്ന് ഒരു തോക്കും സ്ഫോടകവസ്തുക്കളും കണ്ടെടുത്തു

ജനാധിപത്യം നിയമവാഴ്ച തുടങ്ങിയ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ സഹകരണമാണ് ഇന്ത്യയും യുകെ

കോമൺവെൽത്ത് മേധാവിയായി തിരഞ്ഞെടുക്കപ്പെട്ട വെയിൽസ് രാജകുമാരനെ ശ്രീ കോവിന്ദ് അഭിനന്ദിച്ചു

മേളയിൽ പ്രദർശിപ്പിക്കുന്ന ചിത്രങ്ങളിലെ രംഗങ്ങൾ ഉൾപ്പെട്ടതാണ് ആന്തെം

രാജപക്സെയുടെ പൌരത്വം ചോദ്യം ചെയ്തുള്ള റിട്ട് ഹർജി കഴിഞ്ഞ മാസം അപ്പീൽ കോടതി തള്ളിയിരുന്നു എന്നാൽ തന്റെ യു

പൌരത്വം ഉപേക്ഷിച്ചതായും ശ്രീലങ്കൻ പൌരത്വം മാത്രമാണ് തനിക്കുള്ളതെന്നും ഗോതബായ വ്യക്തമാക്കി

സിന്ധു എച്ച്എസ് പ്രണോയ് എന്നിവർ ഹോങ്കോംഗ് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ രണ്ടാം റൌണ്ടിൽ ആറാം സീഡ് സിന്ധു കൊരിയൻ താരം കിം ഗാ ്യ്യൂനിനെ യാണ് തോൽപ്പിച്ചത്

ഒളിമ്പിക് വെള്ളിമെഡൽ ജേതാവായ് സിന്ധു തായ്ലന്റ് താരത്തെ രണ്ടാം റൌണ്ടിൽ നേരിടും